പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗാന്ധിനഗറിൽ ഉദ്ഘാടനം ചെയ്യും

അവസാനത്തേയും മത്സരം ഇന്ന് മെൽബണിൽ

രണ്ടു വർഷത്തിൽ ഒരിക്കലുള്ള ഈ നിക്ഷേപക സംഗമത്തിൽ അഞ്ച് രാഷ്ട്രതലവന്മാരും വിവിധ കമ്പനി തലവന്മാരുൾപ്പെടെ മുപ്പതിനായിരത്തിലേറെ ദേശീയ അന്താരാഷ്ട്ര പ്രതിനിധികളും പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ ഉച്ചകോടി ഞായറാഴ്ച സമാപിക്കും വിശദാംശങ്ങളുമായി കരോൾ അബ്രഹാം

ആശുപിത്രിയെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമാക്കുമെന്നും അതുവഴി പൌരന്മാർക്ക് സൌജന്യ ചികിത്സാ സൌകര്യങ്ങൾ സ്വീകരിക്കാനാകുമെന്നും പ്രധാനമന്ത്രി വൃക്തമാക്കി ഹെലിപാഡ് സൌകര്യമുള്ള രാജ്യത്തെ ആദ്യ ഗവൺമെന്റ് ആശുപത്രിയായ ഇത് ഗുജറാത്തിലെ ചികിത്സാരംഗത്ത് പുത്തൻ ഉണർവ്വ് പകരുമെന്നും പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു

പൊതു വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം നൽകാനുള്ള ഭരണഘടനാ ഭേദഗതി നടപ്പായത് ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിമൂലമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു നിലവിൽ സംവരണം ലഭിക്കുന്ന വിഭാഗങ്ങൾക്ക് അതിൽ ഒരു കുറവും വരുത്താതെയാണ് സാമ്പത്തിക സംവരണം നടപ്പാക്കിയത്

ഇതിനായി ഈ കോളേജുകളിൽ പത്തു ശതമാനം സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പുനൽകി സബർമതി നദീതീരത്ത് നടക്കുന്ന ഒന്നാമത് അഹമ്മദാബാദ് വ്യാപാരോത്സവവും പ്രധാനമന്ത്രി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട പണമിടപാടിലാണ് അഖിലേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്

ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു

നാസികിൽ പ്രതിരോധ വൃവസായ മേഖലയിലെ പ്രതിനിധികളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രതിരോധ ഉൽപാദന വകുപ്പും എച്ച്

ഐ ഉം സംയുക്തമായാണ് സെമിനാർ സംഘടിപ്പിച്ചത് നാസിക്കിലെ പ്രതിരോധ മേഖലയിലെ പുത്തൻ കണ്ടുപിടുത്തങ്ങൾക്കായുള്ള കേന്ദ്രവും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു

യുണിസ്റ്റ്പെയ്സ് നാനോ സാറ്റ്ലെറ്റ് അസംബ്ലി ആൻഡ് ട്രെയിനിംഗ് എന്ന് പേരിട്ടിരിക്കുന്ന പരിശീലന പരിപാടി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബംഗളൂരുപ്പിൽ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയില്ലു അറിവും വൈദഗ്ദ്ധ്യവും മറ്റു രാജ്യങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് ഐ എസ് ആർ ഒ ചെയർമാൻ കെ ശിവൻ പറഞ്ഞു

ഓരോ സംഘത്തിനും എട്ട് ആഴ്ചയാണ് പരിശീലനം നൽകുന്നത്

എസ് പ്രദർശനം വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് സെക്രട്ടറി അമിത് ഖാരെയും ട്രായ് ചെയർമാൻ ആർ

രാജ്യത്ത് വളർന്നു കൊണ്ടിരിക്കുന്ന പ്രക്ഷേപണ മേഖലയെ ഏകോപിപ്പിക്കുന്നതിന് പുതിയ പ്രക്ഷേപണ നയം കൊണ്ടുവരുമെന്ന് ശ്രീ അമിത് ഖാരെ പറഞ്ഞു

ശർമ്മ പറഞ്ഞു പുതുതായി രൂപം നൽകിയ കേബിൾ സർവ്വീസ് മേഖലയിലെ പ്രക്ഷേപണ നയം ഉപഭോക്താക്കൾക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു പൂതിയ നയം ഉപഭോക്താക്കളെ ശാക്തീകരിക്കുകയും കേബിൾ സർവ്വീസിൽ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തുകയും ചെയ്യുമെന്ന് ട്രായ് ചെയർമാൻ വ്യക്തമാക്കി

ബോഗോട്ടയിലെ പോലീസ് അക്കാദമിയിലാണ് തീവ്രവാദികൾ കാർ ബോംബ് സ്ഫോടനം നടത്തിയത്

സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല

ഐ

തലവൻ ഉദയ് കോട്ടയുടെ നേതൃത്വത്തിലുള്ള വൃവസായി പ്രിതിനിധി സംഘം ആർ

ഐ ഐ മുന്നോട്ടുവച്ചു

ഐ ഗവർണർ ശക്തികാന്ത ദാസുമായി ഇന്നലെ മുംബൈയിൽ നടന്ന ചർച്ചയിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്

ആദ്യദിനം പുണ്യസ്നാനം നടത്താൻ രണ്ടേകാൽ കോടി തീർത്ഥാടകരാണ് എത്തിയത് ഈ വർഷത്തെ കുംഭമേളയിൽ സുഗമമായ തീർത്ഥാടനത്തിന് സൌകര്യങ്ങളെ എല്ലാ വിഭാഗം തീർത്ഥാടകരും പ്രശംസിച്ചു

എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മൈക് പോംപിയോയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും ഇരു രാജൃങ്ങളും തമ്മിലുള്ള രണ്ടാം ഉച്ചകോടി വിയറ്റ്നാമിൽ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ

മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ അൽപസമയത്തിനകം മത്സർം ആരംഭിക്കും

ഓസ്ട്രേലിയൻ മണ്ണിൽ ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കിയതിന്റെ ആത്മവിശ്വാസവുമായാണ് ഇന്ത്യ ഇന്നിറങ്ങുന്നത് ഇന്നത്തെ ഏകദിന മത്സരം കൂടി സ്വന്തമാക്കിയാൽ ഇന്ത്യൻ ടീമിന് ചരിത്ര നേട്ടം സ്വന്തമാക്കാനാകും

ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ആദ്യ ഏകദിനം അടുത്ത ബുധനാഴ്ച നേപിയറിൽ നടക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

മഹാരാഷ്ട്രയാണ് പോയ്ിന്റ് പട്ടികയിൽ ഒന്നാമത്

മന്ത്രി ഇ

വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ യാണ് നിയന്ത്രണം